കേരള നിയമസഭയുടെ വജ്ര ജൂബിലി ആഘോഷ സമാ പനത്തിന്റെ ഭാഗമായ ഫെസ്റ്റിവൽ ഓൺ ഡമോക്രസി ഓഗസ്റ്റ് ആറിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാ ടനം ചെയ്യും മലിനമാകുന്നു മണ്ണും വായുവും വെള്ളവും പരിരക്ഷി ക്കാൻ സമൂഹം ഒന്നിച്ച് നിൽക്കണമെന്ന് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഇന്ന് തന്ത്രിയുടെയും പന്തളം രാജകുടുംബത്തിന്റെയും വാദം കേൾക്കും ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് അയർലൻ്റിനെ നേരിടും കേരളത്തിലെ മഴക്കെടുതി വിലയിരുത്താൻ പത്തുദിവ സത്തിനകം കേന്ദ്രസംഘത്തെ സംസ്ഥാനത്തേക്കയക്കു മെന്ന് കേന്ദ്രഗവൺമെന്റ് അറിയിച്ചു ലോക്സഭയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ വെള്ളപ്പൊക്ക ദുരന്തവും മഴ ക്കെടുതിയും സംബന്ധിച്ച് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് കേന്ദ്രസഹമന്ത്രി കിരൺ റിജ്ജു ഇക്കാര്യം അറിയിച്ചത് ആഭൃന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരിക്കും കേന്ദ്രസംഘത്തിന്റെ സന്ദർശനം

എന്നാൽ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി കേരളത്തിന് സഹായം നൽകണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിച്ചില്ല മഴക്കെ ടുതിയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവ ശ്യവും പരിഗണിച്ചില്ല മഴക്കെടുതി ദുരിതാശ്ചാസ പ്രവർത്തനത്തിൽ വീഴ്ച വരു ത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കു മെന്ന് മന്ത്രി ജി സുധാകരൻ ആലപ്പുഴയിൽ പറഞ്ഞു ചില ഉദ്യോഗസ്ഥർ വേണ്ടത്ര സജീവമായി ഇടപെടൽ നടത്തുന്നി ല്ല

കുട്ടനാട് താലൂക്കിൽ ഇന്നും വിദ്യാഭ്യാസ സ്ഥാപന ങ്ങൾക്ക് അവധി നൽകി ഭൂരിഭാഗം പ്രദേശങ്ങളിലും വെള്ള ക്കെട്ട് നിലനിൽക്കുന്നതിനാൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധക മായിരിക്കും

വെള്ളപ്പൊക്കത്തെത്തുടർന്നുണ്ടായ മാലിനൃ പ്രശ്നം പരി ഹരിക്കാൻ വേണ്ടി നൂറ് ടോയ്ലറ്റുകളാണ് സ്ഥാപിക്കുന്നത് പൊന്നാനി കടലിൽ തോണി മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട മൂന്ന് മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റസ്ക്യൂ പ്രവർത്ത കർ രക്ഷിച്ചു പൊന്നാനി അഴിമുഖത്തിന് പടിഞ്ഞാറേ ഭാഗത്ത് ഇവർ സഞ്ചരിച്ചിരുന്ന ഫൈബർ വള്ളം ശക്തമായ തിരയിലേക്ക് മറയുകയായിരുന്നു

ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ വെള്ളപ്പൊക്കത്തിൽ ബുദ്ധി മുട്ടുന്നവരെ സഹായിക്കാൻ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ഇന്ന് ഭക്ഷ്യധാന്യങ്ങൾ സംഭാവനയായി സ്വീകരിക്കും മാനാ ഞ്ചിറ ഡി ടി

സി ഹാളിൽ റവയും ആട്ടയും അരിപ്പൊടിയും എണ്ണയും ഉൾപ്പെടെ ഭക്ഷ്യവസ്തുക്കളും ധാന്യങ്ങളും സമാ ഹരിക്കാനാണ് തീരുമാനം ഇന്നുരാത്രി തന്നെെരണ്ട് ലോറി നിറയെ ഭക്ഷ്യസാധനങ്ങൾ ദുരിതബാധിത മേഖലയിൽ എത്തി ക്കാനാണ് ലക്ഷ്യമിടുന്നത് കേരള നിയമസഭയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപനവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് ആറിന് സംഘടിപ്പി ക്കുന്ന ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യും നിയമസഭാ സമു ച്ചയത്തിലെ ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസിയുടെ ആദ്യ പരിപാടി രണ്ട് ദിവസങ്ങളിലായാണ് സംഘടിപ്പിക്കുന്നതെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഓരോ ദിവസവും മലിനമായിക്കൊണ്ടിരിക്കുന്ന മണ്ണും വെള്ളവും വായുവും ശുചിയായി സൂക്ഷിക്കാൻ സമൂഹം ഒരുമിച്ച് നിൽക്കണമെന്ന് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു

ശ്രീകണ്ഠപുരത്ത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ആരംഭിക്കുന്ന വൈഭവശ്രീ പദ്ധതിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ വികസന പ്രക്രിയ യിൽ നേതൃത്വം വഹിക്കാൻ സ്ത്രീകളെ സജ്ജമാക്കണ മെന്ന് കുമ്മനം രാജശേഖരൻ നിർദ്ദേശിച്ചു പ കാർഗിൽ വിജയ് ദിവസ് ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് മലാപ്പറമ്പ് വേദവ്യാസ സ്കൂളിൽ സംഘടിപ്പി ക്കുന്ന ചടങ്ങിൽ കുമ്മനം രാജശ്യേഖരൻ പങ്കെടുക്കും

ബി എസ്

കോഴിക്കോട് പെരുവണ്ണാമൂഴി ആറ് മെഗാവാട്ട് ജല വൈദ്യുത പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗം തീരുമാനിച്ചു ജലസേചനവകുപ്പും വൈദ്യുതിബോർഡും തമ്മിലുണ്ടാക്കിയ ധാരണാപത്രത്തിലെ മൂന്ന് ഭേദഗതികൾക്കും യോഗം അംഗീകാരം നൽകി പുതിയ ധാരണാപത്രം ഇന്നോ നാളെയോ ഒപ്പുവെയ്ക്കും

അസുഖബാധിതരായി നാട്ടിലേക്ക് മടങ്ങുന്ന വിദേശമലയാളികളെ കേരളത്തിലെ ഏത് വിമാനത്താവളത്തിൽ നിന്നും അവരുടെ വീട്ടിലേക്കോ അവർ ആവശ്യപ്പെടുന്ന ആശുപത്രിയിലേക്കോ സൌജന്യമായി എത്തിക്കുന്ന പദ്ധതിയാണ് നോർക്ക എമർജൻസി ആംബുലൻസ് സർവീസ് ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി ഇന്ന് തന്ത്രിയുടെയും പന്തളം രാജകുടുംബത്തി ന്റെയും വാദം കേൾക്കും നൈഷ്ഠിക് ബ്രഹ്മചാരി എന്ന സങ്കല്പത്തിൽ പൂജാചടങ്ങുകൾ പിന്തുടർന്ന് പോരുന്ന ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് ഭരണഘടനാ പരമായ സംര ക്ഷണമുണ്ടെന്ന് ഇന്നലെ എൻ

എസ് ഭരണഘടനാബ ഞ്ചിനെ അറിയിച്ചിരുന്നു പാക്കിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വൈകുന്നു ഇതുവരെ കിട്ടിയ സൂചനകൾ പ്രകാരം ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല

തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ അതിക്രമങ്ങൾ ഉണ്ടായെന്ന ആരോപണങ്ങൾ പാക് തെരഞ്ഞെടുപ്പ് കമ്മീ ഷൻ നിരസിച്ചു ലണ്ടനിൽ വനിതാ ലോകകപ്പ് ഹോക്കി രണ്ടാം മത്സര ത്തിൽ ഇന്ത്യ ഇന്ന് അയർലന്റിനെ നേരിടും ആദ്യ മത്സര ത്തിൽ ഇംഗ്ലണ്ടുമായി ഇന്ത്യ സമനില പാലിച്ചിരുന്നു സംസ്ഥാന പൊലീസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് റൂറൽ ജില്ലാ ടീം കിരീടം നേടി ഫൈനലിൽ കോഴിക്കോട് സിറ്റിയെ മൂന്ന് സെറ്റുകൾക്ക് റൂറൽ ടീം തോൽപ്പിച്ചു

പി ഒന്നാം ബറ്റാലിയനാണ് മൂന്നാം സ്ഥാനം പുന്നമടക്കായയിലെ നെഹ്രും ട്രോഫി ജലോത്സവത്തിന് വള്ളങ്ങളുടെ രജിസ്ട്രേഷൻ തീയതി നീട്ടി നാളെ വൈകിട്ട് നാലുവരെ ആലപ്പുഴ ആർ ടി ഒ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാം ഏതാനും വള്ളങ്ങൾ മാത്രമാണ് ഇതുവരെ രജി സ്റ്റർ ചെയ്തിരിക്കുന്നത്

കൊച്ചി തുറമുഖത്ത് എറണാകുളം വാർഫിൽ പുതിയതായി നിർമ്മിക്കുന്ന ക്രൂയീസ് ടെർമിനലിന് ശനിയാഴ്ച കേന്ദ്രസഹ മന്ത്രി അൽഫോൺസ് കണ്ണന്താനം തറക്കല്ലിടും

ഇടുക്കി ജില്ലാ കർഷകസംഗമം ഇന്ന് ഉച്ചകഴിഞ്ഞ് തോപ്രാംകുടിയിൽ മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാ ടനം ചെയ്യും മന്ത്രി എം എം മണി ചടങ്ങിൽ അധ്യക്ഷനാ യിരിക്കും ജില്ലയിലെ എം പിമാരും എം എൽ എമാരും ചട ങ്ങിൽ പങ്കെടുക്കും സംഗമത്തിന്റെ ഭാഗ്മായി ഫലവൃ ക്ഷത്തൈ വിതരണവും ഇൻഷുറൻസ് പോളിസി വിതര ണവും സമ്മാനദാനവും സംഘടിപ്പിച്ചിട്ടുണ്ട് മൂന്നാർ ഗസ്റ്റ്ഹൌസിന്റെ പുതിയ മന്ദിരം ഉടൻ പൂർത്തി യാക്കാൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർദ്ദേശം നൽകി

കണ്ണൂർ തളിപ്പറമ്പ് കീഴാറ്റൂരിലെ വയൽ നികത്തിയാണ് ദേശീയപാത ബൈപ്പാസ് നിർമ്മിക്കുന്നതെങ്കിൽ അതിനെ നിയമപരമായി നേരിടുമെന്ന് കീഴാറ്റൂർ സമര നേതാവ് സുരേഷ് കീഴാറ്റൂർ അറിയിച്ചു അലൈൻമെന്റിൽ മാറ്റം വരു ത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

പള്ളുരുത്തി സ്വദേശി സനീഷിനേയാണ് പൊലീസ് പിടികൂടിയത് ഇയാൾ കൊലയിൽ നേരിട്ട് പങ്കെ ടുത്തുവെന്നാണ് പൊലീസിന്റെ കണ്ടെത്തൽ

കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ ഈ വർഷത്തെ പ്രവേശനാനുമതി പിൻവലിക്കാൻ മേൽനോട്ട സമിതി ആരോഗ്യ സർവ്വകലാശാലയ്ക്ക് നിർദ്ദേശം നൽകി

ബന്ദിപ്പൂർ വഴി രാത്രിയാത്രാ നിരോധനം തുടരണമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ദ്ധ സമിതി അന്തിമ റിപ്പോർട്ട് നൽകി

സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഓഫീസ് താൽക്കാലികമായി ഹജ്ജ് കൃാമ്പ് പ്രവർത്തിക്കുന്ന നെടുമ്പാശ്ശേരിയിലെ സിയാൽ അക്കാദമിയിൽ പ്രവർത്തനം ആരംഭിച്ചു അടുത്ത മാസം ഒന്നിനാണ് സംസ്ഥാനത്തുനിന്ന് ആദ്യ ഹജ്ജ് വിമാനം നെടുമ്പാശ്ശേരിയിൽനിന്ന് യാത്ര തിരിക്കുന്നത് സംസ്ഥാന കരകൌശല വികസന കോർപ്പറേഷൻ സംഘ ടിപ്പിക്കുന്ന അഖിലേന്ത്യാ കരകൌശല കൈത്തറി മേളയ്ക്ക് പത്തനംതിട്ടയിൽ ഇന്ന് തുടക്കമാവും വിവിധ സംസ്ഥാന ങ്ങളിലെ നൂറോളം കരകൌശല കൈത്തറി ഉൽപ്പാദകർ ഇട നിലക്കാരില്ലാതെ നേരിട്ട് മേളയിൽ വിപണനം നടത്തും കൊല്ലം ജില്ലയിൽ ലൈഫ് മിഷൻ ഒന്നാം ഘട്ടത്തിലെ വീടുകളുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ അവലോകന യോഗം തീരുമാനിച്ചു

വാരം സി എച്ച് എം ഹ്യർ സെക്കന്ററി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അബ്ദുൾ ബാസി താണ് മരിച്ചത് പത്തനംതിട്ട ജില്ലയിൽ പനിക്കൊപ്പം ഡങ്കിപ്പനിയും എലി പ്പനിയും ബാധിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു